പുരസ്കരജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും

നടപടികൾ ഉൌർജ്ജിതം മൂന്നാഴ്ച തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി

രാഷ്ട്രപതി രാംന്നുമ്പ് കോവിന്ദ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് അനസ്തസീയിദ്ദെസുമായി നിക്കോഷ്യയിൽ ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ച്ചയെ ്തുടർന്ന് രണ്ടു ധാരണാപത്രങ്ങളിൽ ഒപ്പൂപ്പ്പു സാമ്പത്തികം പരിസ്ഥിതി എന്നീ മേഖലകളിലാണ് ധാർണാപ്ത്രങ്ങൾ ഒപ്പുവെച്ചത് സുസ്ഥിരമായ ഊർജ്ജവികസനത്തിനായി അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തിന്റെ ഭാഗമാകാൻ ശ്രീ

സൈപ്രസിലേക്കുള്ള ത്രിദിന സന്ദർശനത്തിന്റെ അവസാനദിവസമായ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സൈപ്രസ് സർവ്വകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും ബൾഗേറിയയിലേക്ക് പോകും മുമ്പ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമയും അദ്ദേഹം അനാച്ഛാദനം ചെയ്യും

ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി എം

പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള മാർഗ്ഗരേഖ മനുഷ്യശേഷി വികസന മന്ത്രാലയം പരിഷ്കരിച്ചിരുന്നു

വളർച്ചക്കുറവ് പോഷകാഹാരമില്ലായ്മ അന്നീമിയ കുട്ടികളുടെ ഭാരക്കുറവ് എന്നിവ സംബന്ധിച്ച് ബ്രോകവത്കരണം നൽകാൻ നിരവധി പരിപാടികളാണ് സംഘട്ടിപ്പിച്ചിട്ടുള്ളത്

കൌമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെയാണ് ്ദേശീയ പോഷകാഹാര മാസം കൂടുതൽ ശ്രദ്ധിക്കുന്നത്

തീരദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരെ പങ്കെടുപ്പിക്കുന്നതാണ് പരിപാടി യുനെസ്കോ സംഘടനയായ ഇന്റർ ഗവൺമെന്റ് ഓഷ്യാനോഗ്രാഫിക് കമ്മീഷനും സുനാമി മുന്നറിയിപ്പ് പരിഹാര സംവിധാനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സുനാമിയെ നേരിടാനായി ഏകോപിതമായ സംവിധാനം നിലവിൽ വരുത്തുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം

എഫ് ഡയറക്ടർ ജനറൽ കെ

ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക അതിർത്തി കടന്നുള്ള കുറ്റകൃത്യം തടയുക മയക്കുമരുന്നിന്റെ കടത്ത് തടയുക തുടങ്ങിയവയാണ് ആറ് ദിവസത്തെ ചർച്ചകളിലെ പ്രധാന വിഷയങ്ങൾ

ബാങ്ക് അക്കൌണ്ടുകൾ സാമൂഹ്യ സുരക്ഷ വായ്പാ സൌകര്യം എന്നിവ വ്യാപകമായി ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഗവൺമെന്റിന്റെ പ്രയത്നങ്ങളുടെ ശരിയായ ഗുണഭോക്താവ് സാധാരണക്കാരും ഇടത്തരക്കാരുമായി മാറി കഴിഞ്ഞദിവസം തുടക്കം കുറിച്ച ഇന്ത്യാ പോസ്റ്റ് പേമെന്റ് ബാങ്കിന്റെ പ്രയോജനം രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിലും ലഭിക്കും ബാങ്കിംഗ് രംഗത്തെ വിപ്തവകരമായ പരിഷ്കരണമാണിത് ഡിസംബർ അവസാനത്തോടെ ഒന്നര ലക്ഷത്തിലേറെ പോസ്റ്റ് ഓഫീസുകൾ ബാങ്കിംഗ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ജെ പി കൈവരിച്ച നേട്ടം കോൺഗ്രസ് ജെ ഡി എസ് ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ കർണ്ണാടകയിലെ അവസരവാദ കൂട്ടുകക്ഷി ഭരണംകൊണ്ട് ബി ജെ പിയുടെ മുന്നേറ്റത്തെ ചെറുക്കാനാവില്ല സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു

ജെ

ഡി

ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ശൈലജ ആവശ്യപ്പെട്ടു ചികിൽസയ്ക്കായി ആശുപത്രികളിൽ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്

എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്സിൻ കഴിക്കുകയാണ് ഏറ്റവും പ്രധാന പ്രതിരോധ മാർഗ്ഗം വെള്ളപ്പൊക്കം കൂടുതൽ ഉണ്ടായ പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം

സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും എലിപ്പനി ചികിൽസയ്ക്ക് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും

മരുന്ന് ഇല്ലാത്തതിന്റെ പേരിൽ ഒരാൾപോലും എലിപ്പനി വന്നു മരിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തണം ആരോഗ്യവകുപ്പിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റും ഇതര സംസ്യാനഗവൺമെന്റുകളും കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ശക്ത്മായി ്പിന്തുണയാണ് നൽകുന്നത്

സംസ്ഥാനുത്ത് എലിപ്പനി ഭീതിജനകമായ സാഹചര്യമുണ്ടാക്കിയിട്ടില്ലെങ്കില്ലും ഏറെ ശ്രദ്ധിക്കേണ്ട അവസരമാണിതെന്ന് ആരോഗ്യ്മന്ത്രി പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക പദ്ധതികളിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രി നരേന്ദ്രസിംഗ് തോമറിന് മന്ത്രി മൊയ്തീൻ കത്തയച്ചു

പ്രളയദുരന്തത്തിൽപ്പെട്ട് പല വിദ്യാർത്ഥികൾക്കും കോളേജുകളിൽ തിരിച്ചെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പരീക്ഷ മാറ്റി വയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു

ഗുരുവായൂർ തൃശൂർ കൊല്ലം പുനലൂർ എറണാകുളം കായംകുളം എന്നിവ ഉൾപ്പടെയുള്ള സർവീസുകളാണ് റയിൽവേ പൂർണമായി റദ്ദാക്കിയത്

തൃശൂർ കോഴിക്കോട് ഗുരുവായൂർ പുനലൂർ എന്നിവ ഭാഗികമായി റദ്ദാക്കിയവയിൽ ഉൾപ്പെടും

അത്യാധുനിക സൌകര്യങ്ങൾ പുതിയ ടെർമിനലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ

ഭരണകക്ഷിയായ തെഹരിക് ഇ ഇൻസാഫ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരിഫ് ആൽവി വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്

നിലവിലെ പ്രസിഡന്റ് മെന്നൂൺ ഹുസൈന്റെ ഔദ്യോഗിക കാലാവധി ശനിയാഴ്ച അവസാനിക്കുകയാണ് ആൽവിക്കു പുറമെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചൌധരി അയിത്സാസ് അഹ്സാനും ജമാഅത്ത് ഉലമാ പ്രസിഡന്റ് മൌലാനാ ഫസലുർ റഹ്മാനും മൽസര രംഗത്തുണ്ട്

എസ് ഓപ്പണിൽ റാഫേൽ നദാൽ നോവാക് ജോക്കോവിച്ച് ഡൊമനിക് തീം ഡൽ പെട്രോവ എന്നിവർ കാർട്ടർ ഫൈനലിൽ കടന്നു

പുരുഷ സിംഗിൾസ് കാർട്ടറിൽ ഡെൽ പെട്രോ ഇന്ന് ജെ

സെറീന വില്യംസ് കാർട്ടറിൽ നാളെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന വിസ്കോവയെ നേരിടും